ഉച്ചയോടെ ഫലങ്ങൾ ലഭിച്ച് തുടങ്ങും

മുന്നണികൾ അണിയറ നീക്കങ്ങൾ ശക്തമാക്കി

എൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം

വാർത്തകൾ വിശദമായി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും രാവിലെ എട്ടിന് തുടങ്ങുന്ന വോട്ടെണ്ണലിൽ ഉച്ചയോടെ ഫലങ്ങൾ അറിവാകുമെന്നാണ് പ്രതീക്ഷ

കൊവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കൌണ്ടിംഗ് ടേബിളുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്

രും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മൂന്നു ദിവസം മാത്രം ശേഷിക്കെ മൂന്ന് മുന്നണികളും അണിയറ നീക്കങ്ങൾ ശക്തമാക്കി നാളെ വൈകിട്ടോടെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്

വിശദാംശങ്ങളുമായി സയ്യിദ് അലി ശിഹാബ് തങ്ങൾ വോയ്സ് രംഭ സംസ്ഥാന പ്രാദേശിക തലങ്ങളിൽ മൂന്ന് മുന്നണികളും ഇത്തവണ പ്രകടന പത്രിക തയ്യാറാക്കുമെന്നാണ് സൂചന കേസന്വേഷണങ്ങളും ആരോപണങ്ങളും ചൂട് പകരുന്ന രാഷ്ട്രീയാന്തരീക്ഷത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങാകുമോ എന്ന ആശങ്കയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എന്നാൽ സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുക ഇരട്ടിയിലേറെ ആക്കിയതോടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് പ്രശ്നമാവില്ലെന്ന ആശ്വാസവും അവർക്കുണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

നിരോധനാജ്ഞ ലംഘിച്ചതിന്റെ പേരിൽ ഏഴ് കേസെടുത്തു ആറുപേരെ അറസ്റ്റ് ചെയ്തു രംഭ കോവിഡ് മഹാമാരിയെ അതിജീവിച്ച് ലോകം എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ പോകുമെന്ന് സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ ആകാശവാണിയോട് പറഞ്ഞു

അനുബന്ധ ലേല ഹാളുകളും നിബന്ധനകൾക്ക് വിധേയമായി തുറക്കാവുന്നതാണ് രംഭ തീർത്ഥാടകരുടെ സൌകര്യവും കോവിഡും പരിഗണിച്ച് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിലേക്ക് മാറ്റണമെന്ന് എം കെ രാഘവൻ എം

കരിപ്പൂരിന് പകരം താൽക്കാലിക സംവിധാനങ്ങൾ മാത്രം ഏർപ്പെടുത്തിയ കൊച്ചിയിലെ ഹജ്ജ് യാത്രാ കേന്ദ്രം കോഴിക്കോട്ട് പുനഃസ്ഥാപിക്കണമെന്നും കേന്ദ്രമന്ത്രിമാരായ മുക്തർ അബ്ബാസ് നഖ് വിയുടോയും ഹർദീപ് സിംഗ് പുരിയോടും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു രും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ ചേർന്ന യു ഡി

നാളെ വീണ്ടും യോഗം ചേരുന്നുമെന്ന് മുന്നണി കൺവീനർ എം എം ഹസ്സൻ അറിയിച്ചു

പൂർത്തിയായ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഏതാനും പദ്ധതികളുടെ തറക്കല്ലിടലും രാവിലെ വീഡിയോ കോൺഫറൻസ് വഴി അദ്ദേഹം നടത്തും ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും ചെയ്യും സാരാനാഥിലെ ലൈറ്റ് ആന്റ് സൌണ്ട് ഷോ ഉൾപ്പെടെ പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നവയിൽ ഉൾപ്പെടുന്നു സാരാനാഥ് പൈതൃക കേന്ദ്രം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് ലൈറ്റ് ആന്റ് സൌണ്ട് ഷോ പ്രധാന ആകർഷണമായി മാറുമെന്നാണ് വിലയിരുത്തൽ

ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഡൽഹി മുംബൈയോട് പരാജയപ്പെട്ടിരുന്നു അതിന് പകരം വീട്ടാൻ അവസരം കൂടിയാണ് ഡൽഹിക്ക് ലഭിച്ചിരിക്കുന്നത് രും ഫാഷൻ ഗോൾഡ് നിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് എം

ബിസിനസ് പൊളിഞ്ഞപ്പോൾ മറ്റൊരാളുടെ കാര്യത്തിലും ഉണ്ടാകാത്ത നീക്കമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിക്ഷേപകർക്ക് പണം തിരിച്ചുനല്കണമെന്ന് തന്നെയാണ് പാർട്ടി നിലപാടെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് ആവർത്തിച്ചു അതിനിടെ ഫാഷൻ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയ തങ്ങൾ ഉൾപ്പെടെ മൂന്നുപേരെ പിടികൂടാൻ ക്രൈംബ്രാഞ്ച് സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു

സി കമറുദ്ദീനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണസംഘം കാഞ്ഞങ്ങാട് കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും കമറുദ്ദീന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും ദര മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും നയതന്ത്ര ബാഗേജിൽ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു

ടി ജലീലിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ും വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റുകളുടെ പുനർ നിർമ്മാണത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര എം എൽ എ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും വിവാദങ്ങളെത്തുടർന്ന് ഫ്ലാറ്റുകളുടെ നിർമ്മാണം നിലച്ചത് ഗുണഭോക്താക്കളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ചാണ് ഹർജി രും കോഴിക്കോട് ബാലുശ്ശേരിയിൽ പീഡനത്തിനിരയായ ആറു വയസ്സുകാരിയുടെ വീട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇന്ന് സന്ദർശിക്കും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി അപകടനില തരണം ചെയ്തെങ്കിലും ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അതേസമയം പൊലീസ് കസ്റ്റഡിയിലിരിക്കെ കേസിലെ പ്രതി ആത്മഹത്യാ ശ്രമം നടത്തിയതിനെക്കുറിച്ച് ക്രൈബ്രാഞ്ച് ഇന്ന് അന്വേഷണം നടത്തും രും വാളയാർ പീഡനകേസിൽ ഗവൺമെന്റിന്റെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് അസ്ഥിരപ്പെടുത്തി പുനർ വിചാരണ ആവശ്യപ്പെട്ടാണ് ഗവൺമെന്റ് അപ്പീൽ സമർപ്പിച്ചത് തുടരന്വേഷണത്തിന് ഒരുക്കമാണെന്നും ഹർജിയിൽ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്

അഴീക്കോട് ഹൈസ്കൂളിൽ പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് നടപടി കോഴിക്കോട് ഇ ഡി സബ് സോണൽ ഓഫീസിൽ ഹാജരാകാൻ അദ്ദേഹത്തിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു രുമ പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് രാവിലെ പ്രസിദ്ധീകരിക്കും

ഇന്നും നാളെയുമായി അലോട്ട്മെന്റ് നടക്കും ശേഷിക്കുന്ന സീറ്റുകളിൽ വ്യാഴാഴ്ച അപേക്ഷ സമർപ്പിക്കാമെന്ന് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു രുര കേരള കലാമണ്ഡലത്തിന്റെ നവതി ആഘോഷം ഇന്ന്

ആഘോഷങ്ങളും പുരസ്കാര വിതരണവും അടുത്ത ജനുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്